മൂന്ന് മുന്നണികളുട്ടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും കോരപ്പുഴയ്ക്ക് കുറുകെ താൽക്കാലിക മേൽപാലത്തിന്റെ പ്രവൃത്തി നാളെ പുനഃരാരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീ ന്ദ്രൻ വയ നാട്ടില്ലെ പ്രപ്ളിയ് ദു രന്ത മേ ഖല സന്ദർശിക്കാൻ രാഹുൽഗാന്ധി കണ്ണൂരിലെത്തി ലക്നൌ അന്തർസംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് ആദ്യസ്വർണം കൊങ്കൺപാതയിലെ ട്രെയിൻഗതാഗതം ഇന്നും തടസ്സപ്പെടും കോട്ടയം കെവിൻ വധക്കേസിൽ കോടതി കുറ്റക്കാരെന്ന് വിധിച്ച പത്തു പേർക്കും കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തം തടവു ശിക്ഷ വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവ മെന്നു കണ്ടെത്തിയ കോടതി പക്ഷേ വധശിക്ഷ ഒഴിവാക്കി

ഇതിൽ നിന്ന് ഒരു ലക്ഷം രൂപ മുഖ്യസാക്ഷി അനീഷിനും ബാക്കി തുക നീനുവിനും കെവിന്റെ പിതാവിനും തുല്യമായി നൽകുകയും വേണം സംസ്ഥാനത്തെ ആദ്യത്തെ ദുരഭിമാനക്കൊലയെന്ന് കോടതി നിരീക്ഷിച്ചതിനാൽ നിയമ കേന്ദ്രങ്ങളും കേരള സമൂഹവും ആകാംക്ഷയോടെയാണ് ശിക്ഷാവിധിക്കായി കാത്തത് കോട്ടയം നട്ടാശേരി എസ് എച്ച് മൌണ്ട് പ്ലാത്തറയിൽ കെവിൻ പി ജോസഫിനെ തെന്മല സ്വദേശി നീനു ചാക്കോയെ വിവാഹം ചെയ്തതിന്റെ പ്രതികാരമായി തട്ടിക്കൊണ്ടു പോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ് നീനുവിന്റെ സഹോദരൻ ഷാനു ചാക്കോയാണ് ഒന്നാം പ്രതി പിതാവ് ചാക്കോയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടിരുന്നു

നീനുവിന്റെ പിതാവ് ചാക്കോ യ്ക്കു കൂടി ശിക്ഷ ലഭിക്കേണ്ടതായിരുന്നുപ്പെന്നും അദ്ദേഹം പറ ഞ്ഞു നേരത്തെ ഏതാനും പ്രതികൾക്ക് വൃധശിക്ഷ കിട്ടുമെന്ന് കരു തിയെങ്കിലും അവരുടെ പ്രായം പ്രിഗണിച്ച് കുറഞ്ഞ ശിക്ഷ വിധി ക്കുകയായിരുന്നുവെന്ന് ജോസഫ് വിലയിരുത്തി കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥാർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദേശ പത്രിക സമർപ്പണം നാളെ തുടങ്ങും മൂന്നു മുന്നണികളിലും സ്ഥാനാർത്ഥി നിർണയം സംബ്സ്വിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നു കേരളാ കോൺഗ്രസ് എമ്മിലെ പിളർപ്പ് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടന്ന് സ്ഥാനാർത്ഥി നീർണയം പൂർത്തിയാക്കാൻ യുഡിഎഫിൽ ചർച്ച കൾ തുടരുകയാണ് എൽ ഡിഎഫിനു വേണ്ടി തുടർച്ചയായി മൽസരിച്ചു വരുന്ന എൻ സി പി ക്കു തന്നെയാകും ഇക്കുറിയും സീറ്റെന്ന് സി പി എം ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു തവണ മൽസരിച്ച മാണി സി കാപ്പനെ എൻസിപി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തു ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എൻ സി പി സംസ്ഥാന നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട് മൂന്നു മുന്നണികളും തിരഞ്ഞെടുപ്പു പ്രചാരണത്തിന്റെ മുന്നൊരുക്ക ങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു

മുന്നണിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല തെരഞ്ഞെ ടുപ്പിൽ വിജയം നേടാനാവുമെന്നും യോജിച്ച തീരുമാനം അടുത്ത ദിവസം തന്നെ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു പാല നിയോജകമണ്ഡലത്തിലെ കേരളകോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ജോസഫ് വിഭാഗം ഉപാധികൾ നിർദേശിച്ചു നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയായി അംഗീ കരിക്കില്ല പൊതു സമ്മത സ്ഥാനാർത്ഥിയെ അംഗീകരിക്കും സ്ഥാനാർത്ഥിയെ പി ജെ ജോസഫ് പ്രഖ്യാപിക്കും എന്നിവയാണ് ജോസഫ് വിഭാഗത്തിന്റെ ഉപാധികൾ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ആരാ ണെന്ന് നാളെ വ്യക്തമാവുമെന്ന് സിഫിഐഎം സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു നാളെ ചേരുന്ന ഇട തുമുന്നണിയോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഘടകക്ഷികളുടെ സീറ്റ് പിടിച്ചെടുക്കുന്ന രീതി സിപിഐഎമ്മിനില്ലെന്നും കോടിയേരി വ്യക്തമാക്കി തെരഞ്ഞെ ടുപ്പിൽ ജയസാധ്യത് മാത്രമാണ് പരിഗണിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു അച്ചടക്കനട്പടി നേരിടുന്ന സിപിഐഎം നേതാവ് പി കെ ശശി യുടെ കാര്യത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായി രിക്കും തീരുമാനം ശശിക്ക് ഉചിതമായ പാർട്ടി ഘടകം തീരുമാനിച്ച് നൽകേണ്ടതുണ്ട് അദ്ദേഹം അംഗമായ ഘടകത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാവും സംസ്ഥാനകമ്മറ്റി തീരുമാനമെടുക്കുകയെന്നും ശശിയുടെ സസ്പെൻഷൻ കാലാവധി അവസാനിച്ച് നാല് മാസം കഴിഞ്ഞെന്നും കോടിയേരി വൃക്തമാക്കി മോദി സ്തുതിയിൽ തിരുവനന്തപുരം എം പി ഡോ ശശിതരൂ രിനോട് വിശദീകരണം തേടാൻ കെപിസിസി നീക്കം മറുപടി കിട്ടി യശേഷം ഹൈക്കമാന്റിന് റിപ്പോർട്ട് നൽകും പ്രസ്താവന ഇനിയും തിരുത്താൻ തയ്യാറാകാത്തിൽ നേതാക്കൾ കടുത്ത അതൃപ്തി പ്രക ടിപ്പിച്ചു

കലക്ട്രേറ്റിൽ വിളിച്ചുചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത് മഴ ശക്തമായപ്പോൾ പുഴയുടെ ഒഴുക്ക് തടസപ്പെടാതിരിക്കാനാണ് പാലം ഭാഗികമായി പൊളിച്ചുനീക്കിയതെന്നും അത് എത്രയും പെട്ടെന്ന് പുനസ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു നടപ്പാത തകർന്നതോടെ കോരപ്പൂഴയിൽ നിന്നും എലത്തൂരിലേക്ക് ജനങ്ങൾ റെയിൽപാളത്തിലൂടെ നടക്കുന്നത് അപകടത്തിനിയാക്കുന്ന സാഹചര്യം ഉണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വയിനാട്ടിലെ പ്രപളിയിദു രൂന്ത സ്മേഖല സന്ദർശിക്കാൻ രാഹുൽഗാന്ധി കണ്ണൂരിലെത്തി വിമാനത്താവളത്തിൽ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എംപി തുട ങ്ങിയ നേതാക്കൾ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു റോഡ് മാർഗം തലപ്പുഴയിലെത്തി ചുങ്കം സെന്റ് തോമസ് പാരി ഷ്ഹാളിലെ ദുരിതാശ്യാസ ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കും തുടർന്ന് വാളാട് മക്കിയാട്ട് പാണ്ടിക്കടവ് ചാമപ്പാടി ചെറുപുഴ എന്നിവിട്ട ങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തും നാളെ രാവിലെ ബാവലിയിലും ചാലിഗദ്ദയിലും എത്തും തുടർന്ന് കൽപ്പറ്റ ബത്തേരി മണ്ഡലങ്ങളിലെ പ്രളയബാധിത പ്രദേശ ശങ്ങളും രാഹുൽ ഗാന്ധി സന്ദർശിക്കും

നേരത്തെ തന്നെ ജെയ്റ്റ്ലിയുടെ വസതിയിലെത്തിയിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജെയ്റ്റ്ലിയുടെ മകൻ രോഹൺ ജെയ്റ്റ്ലിയും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ചശേഷമാണ് നരേന്ദ്രമോദി മടങ്ങിയത് കടൽവഴി ഇന്ത്യയിലെത്തി ഭീകരാക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് പരിശീലനം നേടുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് നാവി കസേനാമേധാവി അഡ്മിറൽ കരംബീർസിംഗ് അറിയിച്ചു എന്നാൽ ഏതുതരം ഭീഷണിയും നേരിടാൻ നാവികസേന സജ്ജമാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ഗ്രാംനെറ്റ് വഴി രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഉടൻ തന്നെ വൈ ഫൈ സൌകര്യമൊരുക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് ശാംറാവു ധോത്രെ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ലക്നൌവിൽ ആരംഭിച്ച അന്തർസംസ്ഥാന അത്ലറ്റിക് മീറ്റിൽ കേരളത്തിന് ആദ്യ സ്വർണം

നടത്തത്തിൽ കേരള വൈസ് ക്യാപ്റ്റൻ സൌമ്യയാണ് സ്വർണം നേടിയത്

പിയു ചിത്രയും ഒളിമ്പ്യൻ കെ ടി ഇർഫാനുമാണ് കേരള ടീമിനെ നയിക്കുന്നത്

ദോഹയിൽ അടുത്തമാസം നടക്കുന്ന ലോകചാമ്പ്യൻഷിപ്പ് യോഗൃ താമത്സരം കൂടിയാണിത് കേരളം മൂന്നാമതെത്തിയ കഴിഞ്ഞ ദേശീ യമീറ്റിൽ ഹരിയാനയായിരുന്ന ചാമ്പ്യന്മാർ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷന്റെ മൂന്നു ദിവസത്തെ ദേശീയ ശില്പശാല നാളെ കോഴിക്കോട്ട് തുടങ്ങും താജ്ഗേറ്റ് ട് വേയിൽ ഉച്ചകഴിഞ്ഞ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പക്ഷിമൃഗാദികളിൽ കണ്ടുവരുന്ന രോഗങ്ങൾക്ക് ചികിത്സാ പ്രോട്ടോകോൾ രൂപികരിക്കുന്നതിനും ഈ രംഗത്തെ നൂതന ചികി ത്സാരീതികളെ കുറിച്ച് വെറ്ററിനറി ഡോക്ടർമാർക്ക് കൂടുതൽ അറി വുപകരുന്നതിനും ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് കൊങ്കൺപാതയിലെ ട്രെയിൻഗതാഗത നിയന്ത്രണം ഇന്നും തുട രും നേത്രാവതി മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസൂകളും അജ്മീർ എക്സ്പ്രസും കൊച്ചുവേളി ഗരീബ് രഥും പാലിക്കാട് വഴി തിരിച്ചു വിട്ടു മംഗലാപുരത്തിനടുത്ത് കുലശേഖരയിൽ മണ്ണിടിഞ്ഞുണ്ടായ ഗതാഗത തടസ്സം ഇനിയും പൂർണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല മലപ്പുറം പട്ടിക്കാട് നെന്മിനിമലയിലെ യങ് ഇന്ത്യാ എസ്റ്റേറ്റിൽ വിള്ളലുണ്ടായ സ്ഥലം ജിയോളജി ഉദ്ദ്യോഗസ്ഥർ പരിശോധിച്ചു ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് അമൃതയുടെ നേതൃത്വത്തിൽ സംഘമാണ് പരിശോധിച്ചത് എസ്റ്റേറ്റിലെ ചേരിപ്രദേശത്തെ റബ്ബർതോട്ടത്തിലാണ് കഴിഞ്ഞ പ്രളയത്തിനുശേഷം വിള്ളൽ കണ്ടെത്തിയത് കഴിഞ്ഞയാഴ്ച റവന്യു അധികൃതർ സ്ഥലംസന്ദർശിച്ച് തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തി ലാണ് ജിയോളജി സംഘമെത്തിയത് കോഴിക്കോട് ജില്ലയിൽ ഉരുൾപൊട്ടലും മണ്ണൊലിപ്പുമുണ്ടായ പ്രദേശങ്ങളിൽ വിദഗ്ധസംഘം നടത്തിയ പരിശോധന സംബന്ധിച്ച റിപ്പോർട്ട് വെളളിയാഴ്ച കലക്ടർ സാംബശിവറാവുവിന് സമർപ്പി ക്കും സംസ്ഥാന ദുരന്തനിവാരണസംഘം ജില്ലയിൽ പരിശോധന തുടരുകയാണ്

ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ ഈ മാസം കണ്ടെത്തിയ മൃതദേഹം തമിഴ്നാട് സ്വദേശി ഗൌരീശങ്കറി ന്റേതെന്നു ഡിഎൻഎ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു പുത്തുമലയിൽ അണ്ണയ്യന്റേതാണെന്നു കാണാതായ ബന്ധുക്കൾ അവകാശവാദമുന്നയിച്ചതിനെത്തുടർന്ന് മൃതദേഹം നേരത്തെ സംസ്കാരത്തിനായി വിട്ടുകൊടുത്തി രുന്നു മേപ്പാടി ശ്മശാനത്തിൽ സംസ്കാരച്ചടങ്ങിനു തൊട്ട് മുമ്പ് ഗൌരീശങ്കറിന്റെ ബന്ധുക്കൾ സംശയവുമായി രംഗത്തെത്തിയ തിനെ തുടർന്നായിരുന്നു ഡിഎൻഎ പരിശോധ്യന നടത്തിയത്

ജെന്റർ മ്യൂസിയം അന്താ രാഷ്ട്ര വുമൺ ട്രേഡ് സെന്റർ എന്നിവ കേന്ദ്രത്തിൽ സ്ഥാപിക്കും ഷീ ടാക്സി സംവിധാനം കൂടുതൽ വിപ്പുലപ്പെടുത്തും അച്ചടക്കനടപടിക്ക് വിധേയനായ് പി കെ ശശിയെ തിരിച്ചെടു ക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപ്പിഐഎം പാലക്കാട് ജില്ലാകമ്മറ്റി സംസ്ഥാന കമ്മറ്റിക്ക് ശുപാർശ് നൽകി ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയെ തുടർന്നാണ് ശശിയെ കമ്മറ്റിയിൽ നിന്ന് മാറ്റിനിർത്തിയത് വയനാട് ബ്രാണാസുരസാഗർ അണക്കെട്ടിന്റെ മൂന്നാമത്തെ ഷട്ടർ പത്ത് സെർമി തുറന്നു പുഴയുടെ തീരങ്ങളിൽ താമസിക്കു ന്നവർ ജാഗ്രൃത് പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കൺസോർഷ്യം രൂപീകരിച്ച് ഭവനരഹിതർക്ക് ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നൽകുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു ചാത്തന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഇടനാട് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വടകര കൊയിലാണ്ടി ഹെഡ്പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീക രിച്ച് സംഘടിപ്പിക്കുന്ന രണ്ടുദിവസത്തെ തപാൽ സേവനമേള നാളെ തുടങ്ങും ആധാർ ഇന്ത്യാ പോസ്റ്റ് പെയ്മെന്റ് ബാങ്ക് ജൻസുരക്ഷാ സ്കീം തുടങ്ങിയ സേവനങ്ങളെ കുറിച്ച് അറിയാനും പദ്ധതിയിൽ അംഗത്വമെടുക്കാനും മേള വഴിയൊരുക്കും

മുഖ്യമന്ത്രിയുടെ ദുരിതാ ശ്വാസ നിധി ദുരുപയോഗം ചെയ്യുന്നുവെന്നും ബക്കറ്റ് പിരിവ് സുതാ ര്യമല്ലെന്നുമുള്ള അപവാദ പ്രചരണത്തിന് മറുപടിയാണ് ഇത്രയധികം തുക സമാഹരിക്കാൻ സാധിച്ചതെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം

ജയരാജൻ പറഞ്ഞു